ശബരിമല സ്ത്രീപ്രവേശന വിഷയത്തിൽ സംസ്ഥാനത്തിന്റെ മതനിരപേക്ഷ മനസ്സിനെ തകർക്കാനാണ് ചിലർ ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി തുലാമാസ പൂജകൾക്കായി ശബരിമല ന്ട വൈകിട്ട് തുറക്കും നിലയ്ക്കലിൽ ആചാര സംരക്ഷണസമിതി സമരം തുടരുന്നു എച്ച് വൺ എൻ വൺ വൈറസ് വ്യാപനം തടയാൻ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്രം കൊച്ചുവേളി ബാനസവാടി ഹംസഫർ ട്രെയിൻ ശനിയാഴ്ച സർവ്വീസ് ആരം ഭിക്കും ജിൻസൺ ജോൺസണും വി നീനയ്ക്കും ജി വി രാജ അവാർഡ്

നവകേരള നിർമ്മാണത്തിന് പ്രവാസി മലയാളികളുടെ സഹകരണം തേടി മുഖ്യമന്ത്രി പിണറായി വിജയൻ യു എ ഇയിലേക്ക് പോയി പുലർച്ചെ തിരുവനന്ത പുരം വിമാനത്താവളത്തിൽ നിന്ന് യാത്ര തിരിച്ച അദ്ദേഹം ആദ്യം അബുദാബിയി ലാണ് എത്തുന്നത് ദുബായ് ഷാർജ എന്നിവിടങ്ങളിലും മലയാളി സമൂഹങ്ങളു മായി അദ്ദേഹം സംവദിക്കും ഞായറാഴ്ച മുഖ്യമന്ത്രി തിരിച്ചെത്തും

കേന്ദ്രാനുമതി ലഭിക്കാത്ത സാഹചര്യത്തിലാണ് യാത്ര റദ്ദാക്കിയത് ശബരിമല സ്ത്രീ പ്രവേശന വിധിക്ക് എതിരായ പ്രതിഷേധങ്ങളുടെ മറവിൽ സംസ്ഥാനത്തിന്റെ മതനിരപേക്ഷ മനസ്സിനെ തകർക്കാനാണ് ചിലർ ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ബിജെപിയുടെയും യുഡിഎഫിന്റെയും ലക്ഷ്യം ഇതാണെന്നും ഇത് തിരിച്ചറിഞ്ഞ് എല്ലാ വിശ്വാസികളും ഇതിനെതിരെ അണിനിരക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു തിരുവനന്തപു രത്ത് ശബരിമലയ വിഷയത്തിൽ എൽഡിഎഫ് സംഘടിപ്പിച്ച പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വിശ്വാസികളുമായി ഗവൺമെന്റ് ഏറ്റുമുട്ടാനില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു

അടുത്ത തിങ്കളാഴ്ച്ച ആദ്യയോഗം തിരു വനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് നടക്കുമെന്നും അദ്ദേഹം പറഞ്ഞു

ശ്ബരിമല സ്ത്രീപ്രവേശന വിഷയത്തിലെ സുപ്രീം കോടതി ഉത്തരവ് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ വിശ്വാസം സംര ക്ഷിക്കാൻ നടപടികൾ സ്പീകരിക്കാതെ ക്ഷണിച്ചു വരുത്തിയതാണെന്നും അദ്ദേഹം പറഞ്ഞു ് ശബരിമലയിൽ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രതിഷേധങ്ങൾ ഭരണഘടന യ്ക്കും സുപ്രിം കോടതിക്കും എതിരാണെന്ന് മുൻ മുഖ്യമന്ത്രി വിഎസ് അച്യുതാനന്ദൻ പറഞ്ഞു മലപ്പുറം പന്തല്പൂരിൽ ക്ഷേത്ര ദേവസ്വം നൽകിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭരണഘടന അനുസരിച്ച് സ്ത്രീകൾക്ക് നീതി ഉറപ്പാക്കുന്നതാണ് സുപ്രിം കോടതി വിധിയെന്നും വി എസ് പറഞ്ഞു കേന്ദ്രത്തിൽ അധികാരമുള്ള ബി ജെ പി രാഷ്ട്രീയ സ്വാധീനം ഉപയോ ഗിച്ച് നിയമനിർമ്മാണത്തിന് മുൻകൈ എടുക്കാതെ ശബരിമല വിഷയത്തിൽ സമരം ചെയ്യുന്നത് ഇരട്ടത്താപ്പാണെന്ന് എ ഐ സി സി സെക്രട്ടറി പി

വിഷ്ണുനാഥ് പറഞ്ഞു പത്തനംതിട്ട ആറന്മുളയിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കമ്മീ ഷണർ ഓഫീസിന് മുന്നിൽ കോൺഗ്രസ് സംഘടിപ്പിച്ച ഏകദിന ഉപവാസം ഉദ്ഘാ ടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

പി നിർവാഹക സമിതിഅംഗം പി

കൃഷണദാസ് കണ്ണൂരിൽ പറ ഞ്ഞു ശബരിമല വിഷയം രാഷ്ട്രീയമല്ലെന്നും വിശ്വാസികളും അവിശ്വാസികളും ത മ്മിലുളളതാണെന്നും അദ്ദേഹം പറഞ്ഞു തുലാമാസ പൂജകൾക്കായി ഇന്ന് വൈകിട്ട് അഞ്ചിന് ശബരിമല നട തുറക്കും നാളെ പുലർച്ചെ പതിവു പൂജകളും വിശേഷാൽ പൂജകളും ആരംഭി ക്കും ശബരിമല മാളികപ്പുറം ക്ഷേത്രങ്ങളിലെ പുതിയ മേൽശാന്തിമാരെ നിശ്ചയി ക്കുന്നതിന് നറുക്കെടുപ്പ് നാളെ രാവിലെ സന്നിധാനത്ത് നടക്കും

ശബരിമല നിലയ്ക്കലിൽ ആചാര സംരക്ഷണ സമിതി പ്രവർത്തക രുടെ സമരം തുടരുകയാണ് പമ്പയിലേക്കുളള പൊല്പീസ് വാഹനം തടഞ്ഞ് പരി ശോധിക്കാൻ നടത്തിയ ശ്രമം നിലയ്ക്കലിൽ സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു പ്രതി ഷേധക്കാരുടെ നേരെ പൊലീസ് ലാത്തി വീശി വനിതാപൊലീസ് ബറ്റാലിയൻ ഉൾപ്പെടെ പൊലീസ് സേനയെ നിലയ്ക്കലിൽ വിന്യസിച്ചിട്ടുണ്ട്

സംഘടനകൾ സമരം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഏത് സാഹചര്യങ്ങളെയും നേരിടുന്നതിനായി പൊലീസിന്റെ സ്ട്രൈക്കിംഗ് ഫോഴ്സിനെ പത്തനംതിട്ട ജില്ല യുടെ വിവിധ ഭാഗങ്ങളിൽ നിയോഗിച്ചു

പത്തനംതിട്ട മുതൽ പമ്പ വരെ പ്രദേശങ്ങളിൽ സുരക്ഷാ ക്രമീകരണങ്ങളും ശക്തമാക്കിയിട്ടുണ്ട് തീർത്ഥാടകരെ തടഞ്ഞാൽ നടപടിയുണ്ടാകുമെന്ന് പൊലീസ് അറിയിച്ചു എന്നാൽ എന്തുവില കൊടുത്തും പത്തിനും അമ്പതിനും ഇടയിൽ പ്രായം വരുന്ന സ്ത്രീകൾ ശബരിമല ദർശനത്തിന് എത്തിയാൽ തടയുമെന്ന ഭീഷണിയുമായി വിവിധ സംഘ ടനകളും രംഗത്തുണ്ട് ് ് ് ് ് ് ് ശബരിമലയിൽ പരമ്പരാഗതമായി പരിപാലിച്ചുപോന്ന ആചാരാനുഷ്ഠാ നങ്ങൾ കോടതി വിധിയിലൂടെ മാറ്റുന്നത് അയ്യപ്പഭക്തരുടെ വിശ്വാസങ്ങളെ വ്രണ പ്പെടുത്തുന്നതാണെന്ന് കാസർക്കോട് ചേർന്ന അഖില കേരള യാദവസഭ സംസ്ഥാന കമ്മിറ്റി യോഗം വിലയിരുത്തി

വിജയദശമി ദിവസമായ മറ്റന്നാൾ രാവിലെ പൂജയെടുപ്പും വിദ്യാ രംഭവും നടക്കും

വൈകീട്ട് എം

വാസുദേവൻ നായർ മൂന്ന് ദിവസത്തെ കലോത്സവത്തിന് തിരിതെളിയിക്കും മറ്റന്നാളാണ് വിദ്യാരംഭ ചടങ്ങുകൾ

പാലിക്കാൻ കേന്ദ്രം കേരളം ഉൾപ്പെടെ സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടു ഇതിന് എല്ലാ സഹായവും നൽകുമെന്ന് ആരോഗ്യമന്ത്രി ജെ

നദ്ധ പറഞ്ഞു ന്യൂഡൽഹിയിൽ രാജസ്ഥാനിലെ സിഖ വൈറസ് ബാധയും മറ്റു സംസ്ഥാനങ്ങ ളിലെ പകർച്ചവ്യാധിയും തടയുന്നതിന് നടത്തുന്ന പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാൻ ചേർന്ന ഉന്നതതലയോഗത്തിലാണ് നദ്ധ ഈ നിർദ്ദേശം നൽകിയത് ഫോഗിംഗ് ഉൾപ്പെടെ നടപടികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു

തായി അനുവദിച്ച ഹംസഫർ ദൈവാര എക്സ്പ്രസ് ട്രെയിൻ ശനിയാഴ്ച സർവ്വീസ് ആരംഭിക്കും

ലോക്കേഷനുകളിൽ ആഭ്യന്തര പരാതിസെൽ രൂപവൽക്കരിക്കണമെന്നാവശ്യപ്പെട്ടും വിമൻ ഇൻ സിനിമാ കളക്ടീവ് അംഗങ്ങൾ ഹൈക്കോടതിയിൽ ഹർജി നൽകി

ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിച്ചേക്കും

അന്താരാഷ്ട്ര അത്ലറ്റ് ജിൻസൺ ജോൺസണെ കഴിഞ്ഞ വർഷത്തെ പുരുഷവിഭാഗം ജി വി രാജ അവാർഡിന് തെരഞ്ഞെടുത്തു

നീനയ്ക്കാണ് വനിതാവിഭാഗം പുരസ്കാരം ഇവർക്ക് മൂന്നുലക്ഷം രൂപയും ഫലകവും പ്രശംസാപത്രവും സമ്മാനിക്കുമെന്ന് തിരുവനന്തപുരത്ത് അവാർഡു കൾ പ്രഖ്യാപിച്ച മന്ത്രി ഇ

ജയരാജൻ അറിയിച്ചു ബാഡ്മിന്റൺ പരിശീലകൻ എസ് മുരളീധരനാണ് ഒളിമ്പ്യൻ സുരേഷ്ബാബു ലൈഫ്ടൈം അച്ചീവ്മെന്റ് അവാർഡ് ലഭിച്ചത് മികച്ച വോളിബോൾ പരിശീലകനായി എസ്

ടി കെയെ നേരിടും

പി സ്കൂളിലെ കെ

കണ്ണൂരിൽ നടന്ന സംസ്ഥാന സബ് ജൂനിയർ ചെസ് മൽസരത്തിൽ ജയിച്ചാണ് അവിനാശ് ദേശീയ മൽസര ത്തിലേക്ക് യോഗൃത നേടിയത്

രണ്ട് കുട്ടികൾ ഉൾപ്പെടെ മൂന്ന് പേർ മരിച്ചു കാറിലുണ്ടായിരുന്ന തൃശൂർ സ്വദേശി കളാണ് മരിച്ചത്

ഇന്ന് പുലർച്ചെ നാലരയോടെ യായിരുന്നു അപകടം മംഗലാപുരത്ത് നിന്ന് വരികയായിരുന്ന ടാങ്കർ ലോറിയും മുകാംബികയിലേക്ക് പോകുകയായിരുന്ന കാറുമാണ് കൂട്ടിയിടിച്ചതെന്ന് പോലീ സ് അറിയിച്ചു

കണ്ടെത്തുന്നതിന് സ്കാഡ് പ്രവർത്തനങ്ങൾ ശക്തമായി തുടരുമെന്ന് ജില്ലാ സപ്ലൈ ഓഫീസർ അറിയിച്ചു അർഹരല്ലാത്ത കാർഡുടമകൾ മുൻഗണനാപട്ടികയിൽ തുട രുകയും ആനുകൂല്യങ്ങൾ കൈപ്പറ്റുകയും ചെയ്താൽ ഇതുവരെ വാങ്ങിച്ച ഭക്ഷ്യ ധാന്യങ്ങളുടെ വില ഈടാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു

ജുകൾക്കും പഠന വകുപ്പുകൾക്കും സർവകലാശാല സെന്ററുകൾക്കും മഹാനവ മിയോടനുബന്ധിച്ച് ഇന്നു കൂടി അവധി പ്രഖ്യാപിച്ചു

ഇന്ന് നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിയതായും പുതുക്കിയ തിയ്യതി പിന്നീട് അറിയിക്കുമെന്നും സർവകലാശാല അറിയിച്ചു

തൃശൂർ നിലയം അവതരിപ്പിച്ച ജനാല എന്ന നാടകം തെരഞ്ഞെടുത്തു കഴിഞ്ഞ വർഷത്തെ ആകാശവാണി അഖിലകേരള റേഡിയോ നാടകോത്സവത്തിലാണ് തൃശൂർ നിലയം ജനാല അവതരിപ്പിച്ചത്

സബ്രജിസ്ട്രാറെ വിജിലൻസ് അറസ്റ്റ് ചെയ്തു ചിതറ സബ് രജിസ്ട്രാർ ഓഫീസിലെ സബ്രജിസ്ട്രാർ തേവലക്കര സ്വദേശി ആർ

ടുപ്പ് സാക്ഷരതാ ക്ലബ്ബുകൾക്ക് സംസ്ഥാനതലത്തിൽ തുടക്കമായി തിരുവനന്ത പുരം ഗവൺമെന്റ് വിമൻസ് കോളേജിൽ ചീഫ് ഇലക്ട്രൽ ഓഫീസർ ടീക്കാറാം മീണ തെരഞ്ഞെടുപ്പ് സാക്ഷരതാ ക്സബ്ബ് ഉദ്ഘാടനം ചെയ്തു

സാമൂഹ്യ മാധ്യമങ്ങളിൽ സ്ത്രീകളെ അധിക്ഷേപി ക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് സ്ത്രീകളുടെയും കുട്ടികളുടേയും ട്രാൻസ് ജെൻഡറുകളുടേയും ഭിന്നശേഷിക്കാരുടെയും ക്ഷേമം സംബന്ധിച്ച നിയമസഭാ സമിതി പോലീസിന് നിർദേശം നൽകി സൈബർ ്ഇടങ്ങളിൽ സ്ത്രീകളെ അവഹേളിക്കുന്ന പ്രവണത പൊതുവേ വർദ്ധിച്ചു വരികയാണെന്ന് കൊല്ലം കളക് ട്രേറ്റിൽ നടന്ന സിറ്റിംഗിൽ സമിതി വിലയിരുത്തി

ഡാമിൽ നിന്ന് വെള്ളം തുറക്കുന്നത് ക്രമീകരിക്കണമെന്ന് ഭരണപരിഷ്കരണ കമ്മീഷൻ അധ്യക്ഷൻ വി

അച്യുതാനന്ദൻ നിർദ്ദേശം നൽകി വിവിധ കർഷക സംഘടനകൾ ജലം ലഭ്യമാക്കു ന്നതുമായി ബന്ധപ്പെട്ട ആശങ്കകൾ അറിയിച്ചതിനെ തുടർന്നാണ് നിർദ്ദേശം

പി ഭരിക്കുന്ന പാലക്കാട് നഗരസഭക്കെതിരെ യു

നോട്ടീസ് നൽകാൻ ഒരംഗത്തിന്റെ കുറവുള്ളതിനാൽ സമാന ചിന്താഗതിക്കാരുടെ പിന്തുണ തേടി അവിശാസം കൊണ്ടു വരാനാണ് തീരുമാനം തിരൂർ പറവണ്ണയിൽ ഓട്ടോറിക്ഷാ ഡ്രൈവർ കുത്തേറ്റ് മരിച്ചു

ഓട്ടം പോകാൻ വിസമ്മതി ച്ചതിനെ തുടർന്നാണ് ഓട്ടോ ഡ്രൈവറെ കുത്തി കൊലപ്പെടുത്തിയതെന്ന് പൊലീസ് പറഞ്ഞു